പ്രതിരോധ വികസന പദ്ധതികളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ജപ്പാനും ആറ് കരാറുകളിൽ ഒപ്പു വച്ചു

ശക്തമാക്കുന്നതിന് സ്ംയുക്ത കമ്മീഷൻ സ്ഥാപിക്കാൻ തീരുമാനം

മുസാഫർപൂർ അഭയകേന്ദ്രം പീഢന കേസിൽ ബീഹാർ മുൻമന്ത്രി മഞ്ജുവർമ്മയുടെ ഭർത്താവ് ചന്ദ്രശേഖർ വർമ്മ കോടതിയിൽ കീഴടങ്ങി

ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സൈബർ സ്പേയ്സ് ആരോഗ്യം പ്രതിരോധം സമുദ്രരംഗം ബഹിരാകാശ ശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജൃങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാൻ ധാരണയായെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ജപ്പാൻ ധനസഹായത്തോടെ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ നിർമ്മാണം ഡൽഹി ഗതാഗത സംവിധാന പദ്ധതിയുടെ മൂന്നാംഘട്ടം വടക്ക് കിഴക്കൻ മേഖലയിലെ റോഡ് നവീകരണം ചെന്നൈ അനുബന്ധ റിംഗ് റോഡ് നിർമ്മാണം എന്നിവ പൂർത്തിയാക്കാനും ഇരു രാജൃങ്ങളും തമ്മിൽ ധാരണയായി

രാജേന്ദ്രപ്രസാദ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബിരുദദാന ചടങ്ങിൽ സംബന്ധിച്ചു മികച്ച വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി മെഡലുകൾ സമ്മാനിച്ചു് ആതുരസേവനത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സാമൂഹൃ സേവനം ചെയ്യാൻ ശ്രീ രാംനാഥ് കോവിന്ദ് യുവ ഡോക്ടർമാരെ ആഹ്വാനം ചെയ്തു ആരോഗ്യ സേവന മേഖലയിൽ ആയുഷ്മാൻ ഭവ പദ്ധതി ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു

ഇത് സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ വിദേശകാരൃമന്ത്രി സുഷമ സ്വരാജ് ദോഹയിൽ ഒപ്പുവച്ചു

വോയിസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാനം രൂപപ്പെടുത്തുകയാണ് സംയുക്ത കമ്മിഷന്റെ ദൌത്യമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു സാമ്പത്തികം വ്യാവസായം സാംസ്കാരം ശാസ്ത്രം വിവരസാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് കമ്മീഷൻ ഊന്നൽ നൽകും

കമ്മീഷന്റെ യോഗങ്ങൾ ഇരു രാജ്യങ്ങളിലുമായി ്ട്രനിശ്ചയിക്കപ്പെടുന്ന സമയത്ത് മാറിമാറി നടക്കും നേരത്തേ വിദേശകാരൃമന്ത്രി സുഷമസ്വരാജ് ഖത്തർ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മൊഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി പ്രതിനിധിതല ചർച്ച നടത്തിയിരുന്നു

അയോദ്ധ്യ ഭൂമി തർക്കം സംബന്ധിച്ച വാദത്തിനിടയിലാണ് വിഷയം ഉയർന്നു വന്നത്

സായുധ സേന പരിവർത്തനത്തിന്റെ പാതയിലാണെന്നും ആയുധ സംവിധാനം നവീകരിക്കേ ത് അനിവാരൃമാണെന്നും ജനറൽ റാവത്ത് ന്യൂഡൽഹിയിൽ പറഞ്ഞു ആയുധങ്ങളും മറ്റ് ഉപകരണങ്ങളും ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചെയ്യുകയാണിപ്പോൾ ബ്രസീൽ ചിലി വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് താമസിയാതെ രാജ്യത്തെ പ്രതിരോധ ഇടനാഴി യാഥാർത്ഥ്യമാകുമെന്നും ജനറൽ റാവത്ത് പറഞ്ഞു ഭാവിക്ക് വേ ി ആയുധരംഗത്ത് ആധുനിക സാങ്കേതിക ഉൾപ്പെടുത്തിയാണ് സേന മുന്നോട്ട് പോകുന്നതെന്നും വിദ്യ അദ്ദേഹം വ്യക്തമാക്കി

രാജ്യത്ത് വനിതകൾക്കും വനിതാ സംരംഭങ്ങൾക്കും നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള നാരീ ശക്തി പുരസ്കാരം എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതിയാണ് പുര്സകാര വിതരണം നടത്തുക

ബഗുസരയ് ജില്ലയിലെ പ്രാദേശിക കോടതിയിലാണ് ചന്ദ്രശേഖർ വർമ്മ കീഴടങ്ങിയത്

കഴിഞ്ഞ ഒരു മാസമായി ഒളിവിൽ കഴിയുകയായിരുന്നു വർമ്മ കീഴ്ക്കോടതിയും പാട്ന ഹൈക്കോടതിയും ജാമ്യാപേക്ഷകൾ തുടർച്ചയായി നിരസിച്ച സാഹചര്യത്തിലാണ് കീഴടങ്ങൽ ആയുധം കൈവശം വച്ചതിന് സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട് സെപ്തംബറിൽ പോലീസ് ചന്ദ്രശേഖർ വർമ്മയ്ക്കെതിരെ അറസ്റ്റ് വാറ ് പുറപ്പെടുവിച്ചിരുന്നു

പകടക്കങ്ങൾ പുറന്തള്ളുന്ന പുകയും മറ്റ് മലിനീകരണങ്ങളും തടയുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതി പരീക്ഷണശാലകളും വികസിപ്പിച്ചെടുത്തതായി കേന്ദ്രമന്ത്രി അറിയിച്ചു

കേന്ദ്രആരോഗൃമന്ത്രി ജെ പി നദ്ദയും മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളും സംയുക്തമായി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ രംഗത്തെ പുരോഗതിക്ക് വേ വിവിധ സംസ്ഥാനങ്ങളും സംഘടനകളും നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ പങ്ക് വയ്ക്കുകയാണ് ത്രിദിന ഉച്ചകോടിയുടെ ലക്ഷ്യം മുതിർന്ന ഉദ്യോഗസ്ഥരും ആരോഗ്യ വിദഗ്ധരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കും

ഇന്ന് രാവിലെ തലസ്ഥാനമായ ജക്കാർത്തയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മിനിറ്റുകൾക്കിടയിലായിരുന്നു സംഭപ്പിക് ഇന്ത്യൻ വൈമാനികനായ ഭാവ്യേ സുനേജ വിമാന രൂപകടത്തിൽ കൊല്ലപ്പെട്ടതായി ജക്കാർത്തയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം സ്ഥിരീകരിച്ചു ഇന്തോനേഷ്യൻ ദുർത്ത് നിവാരണ ഏജൻസി പുറത്തുവിട്ട വാർത്താ ചിത്രത്തിൽ ദുരന്ത സ്ഥലത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ ടുത്ത സ്മാർട്ട്ഫോണുകളുടേയും ബാഗുകളുടേയും കല പുസ്തകങ്ങളുടേയും ചിത്രങ്ങൾ ഉൾപ്പെടുന്നു ദുരന്ത പ്രദേശമായ പങ്കാൽ പിനാങ് വിമാനത്താവളത്തിന് സമീപം നിരവധി പേർ ആകാംക്ഷയോടെ കൂടി നിൽക്കുന്നതിന്റെ ചിത്രവും ഇൻഡോനേഷ്യൻ ടി വി പുറത്തുവിട്ടു

പുതിയ പ്രധാനമന്ത്രിയായി മഹീന്ദ രാജപക്സെ ചുമതല ഏറ്റതിന് പിന്നാലെയാണ് എം പിമാരുടെ നീക്കം പാർലമെന്റിന്മേലുള്ള പിൻവലിച്ച് പ്രസിഡന്റും പുറത്താക്കപ്പെട്ട സസ്പെൻഷൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള അധികാര തർക്കം അവസാനിപ്പിക്കാൻ എം പി മാരെ അനുവദിക്കണമെന്ന് സ്പീക്കർ കാരു ജയസൂര്യ പ്രസിഡന്റ് മൈതിരിപാല സിരിസേനയോട് ആവശ്യപ്പെട്ടു പ്രതിസന്ധി പാർലമെന്റിലൂടെ പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിഷയം തെരുവിലേക്ക് വലിച്ചിഴച്ചാൽ ചോരക്കളമായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി